ഇതോടൊപ്പം കോവിഡ് വാക്സിനേഷന് കൂടുതൽ ഉദാരവൽകൃതവും വേഗമേറിയതുമായ മൂന്നാംഘട്ട നയവും കേന്ദ്രം പ്രഖ്യാപിച്ചു

ഈ വാക്സിനുകൾ കേന്ദ്രം ക്വാട്ട നിശ്ചയിച്ച് സംസ്ഥാനങ്ങൾക്ക് സൌജന്യമായി നൽകും സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും രോഗവ്യാപനവും വാക്സിൻ നൽകുന്നതിലെ പുരോഗതിയും കണക്കിലെടുത്തായിരിക്കും ക്വാട്ട നിശ്ചയിക്കുക

കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പേർക്ക് വാക്സിൻ നൽകുന്നതിന് കഴിഞ്ഞ ഒരു വർഷമായി ഗവൺമെന്റ് കഠിനാധ്വാനം ചെയ്യുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

കൂടുതൽ പേരെ വാക്സിൻ സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കണമെന്ന് രാജ്യത്തെ ഡോക്ടർമാരുമായി കോവിഡ് വ്യാപനവും വാക്സിനേഷൻ പുരോഗതിയും സംബന്ധിച്ച് നടത്തിയ വിഡിയോ കോൺഫറൻസിങ്ങിൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു കോവിഡ് ചികിത്സയും പ്രതിരോധവും സംബന്ധിച്ച് നിരവധി ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുണ്ടെന്നും അതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മറ്റ് രോഗങ്ങളുടെ ചികിത്സക്ക് ടെലി മെഡിസിൻ ഉപയോഗപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രുഭ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ മേഖലയിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി വിഡിയോ കോൺഫറൻസിങ്ങ് വഴി സംസാരിച്ചു മരുന്നുകളുടെയും അത്യാവശ്യ മെഡിക്കൽ ഉപകരണങ്ങളുടേയും സുഗമമായ ലഭ്യത ഉറപ്പുവരുത്താൻ വ്യവസായികളോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു ഗതാഗതം ഉൾപ്പെടെ സൌകര്യങ്ങൾ ഗവൺമെന്റ് ഉറപ്പുവരുത്തുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു കോവിഡ് മഹാമാരിക്കെതിരായ പോരാട്ടത്തിൽ ഫാർമസ്യൂട്ടിക്കൽ മേഖല വഹിക്കുന്ന നിർണ്ണായക പങ്കിനെ പ്രധാനമന്ത്രി അനുമോദിച്ചു

ഡൽഹിയിലെ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലാണ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത് മൻമോഹൻ സിംഗിന് ആയുരാരോഗ്യ സൌഖ്യങ്ങൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അദ്ദേഹം വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും ആശംസിച്ചു ദേദ കോവിഡിന്റെ തീവ്ര വ്യാപനം നിയന്ത്രിക്കാൻ സംസ്ഥാനത്ത് ഇന്നുമുതൽ രാത്രികാല കർഫ്യു നിലവിൽ വരും

രണ്ടാഴ്ച്ചത്തേക്കാണ് കർഫ്യു തീരുമാനിച്ചിരിക്കുന്നതെങ്കിലും പിന്നീട് സ്ഥിതി വിലയിരുത്തി നീട്ടുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് ചീഫ് സെക്രട്ടറി ഡോ

മെഡിക്കൽ സ്റ്റോറുകൾ ആശുപത്രികൾ പെട്രോൾ പമ്പുകൾ രാത്രി ഷിഫ്റ്റിലെ ജീവനക്കാർ പാൽ പത്രം മാധ്യമങ്ങൾ ചരക്ക് വാഹനങ്ങൾ പൊതു യാത്രാ വാഹനങ്ങൾ എന്നിവയെ നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഹോട്ടലുകളിൽ നിന്ന് രാത്രി ഒൻപതിന് ശേഷം പാർസൽ വിതരണം പാടില്ല

എല്ലാ പതിവ് ആരാധനാ കർമ്മങ്ങളും ഉത്സവങ്ങളും ഓൺലൈനിൽ നൽകാം ട്യൂഷൻ സെന്ററുകൾ തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ല

ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾ രണ്ടാഴ്ച്ചത്തേക്ക് മാറ്റിവെയ്ക്കും

പ്രോട്ടോകോൾ ലംഘനത്തിന്റെ ഗൌരവം പരിശോധിച്ച് അടച്ചിടേണ്ട ദിവസങ്ങളിൽ മാറ്റം വരുത്തും

ദര കൊവിഡ് വ്യാപനം തടയുന്നതിന് സംസ്ഥാനത്തെ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധനയും നിയന്ത്രണങ്ങളും കർശനമാക്കി കോവിഡ് ഇ ജാഗ്രത പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് ചെക്ക് പോസ്റ്റുകൾ വഴി പ്രവേശനം അനുവദിക്കുന്നത്

കൊല്ലം വയനാട് പാലക്കാട് ജില്ലകളിലെ ചെക്ക് പോസ്റ്റുകളിൽ എല്ലാം പരിശോധന കർശനമാണ് വനത്തിലെ ഊടുവഴികളിലൂടെ തമിഴ്നാട്ടിൽ നിന്ന് സംസ്ഥാനത്തേക്ക് കടക്കുന്നവരെ കർശനമായി തടയും ദര ഇടുക്കി ജില്ലയിലെ എല്ലാ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും രാത്രി യാത്രയ്ക്ക് ജില്ലാ കലക്ടർ നാളെ മുതൽ നിരോധനം ഏർപ്പെടുത്തി രാത്രി എട്ട് മുതൽ രാവിലെ ആറ് വരെയാണ് അന്തർ സംസ്ഥാന യാത്രയ്ക്ക് നിരോധനം

രുഭ കോവിഡ് രോഗികളുടെ എണ്ണം കൂടിയ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ ചികിത്സാ സൌകര്യങ്ങൾ വിപുലീകരിക്കും നിലവിലുണ്ടായിരുന്ന ഫസ്റ്റ്ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ പുനസ്ഥാപിക്കും

ദേദ കൊല്ലം ജില്ലയിലെ സ്കൂളുകളിൽ പരീക്ഷാ സമയം അവസാനിച്ച ശേഷം സമ്പർക്ക വ്യാപന സാധ്യത തടയാൻ സ്കൂൾ പരിസരങ്ങളിൽ പൊലീസ് നിരീക്ഷണം ശക്തമാക്കുമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ ബി അബ്ദുൾ നാസർ അറിയിച്ചു ദര കൊവിഡ് വ്യാപനം കണക്കിലെടുത്ത് യു

എസ്

എൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിംഗ്സ് രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ചു

ഇന്ന് വൈകീട്ട് ഏഴരക്ക് ചെന്നൈയിൽ ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും

രും തൃശൂർപൂരം പൊതുജനങ്ങളെ പങ്കെടുപ്പിക്കാതെ ചടങ്ങ് മാത്രമായി നടത്തും

മഠത്തിൽവരവ് പഞ്ചവാദ്യം കുടമാറ്റം എന്നീ ചടങ്ങുകളും ചുരുക്കി ആണ് നടത്തുക

മടപ്പുരയിൽ തിരുവപ്പനയും വെള്ളാട്ടവും കഴിഞ്ഞ ദിവസം മുതൽ നിർത്തിവെച്ചിരുന്നു

കൂടുതൽ അന്വേഷണത്തിന് ബോട്ട് കൊച്ചിയിൽ എത്തിച്ചു

ഷാർജയിൽ നിന്ന് എത്തിയ ബാലുശേരി സ്വദേശി പിലാത്തോട്ടത്തിൽ മുനീർ ഷാർജയിൽ നിന്ന് വന്ന വടകര സ്വദേശി തുണ്ടിയിൽതാഴെ ഫിറോസ് ബഹ്റൈനിൽ നിന്ന് എത്തിയ കാസർകോട് സ്വദേശി കുനിയിൽ അബ്ദുള്ള എന്നിവരിൽ നിന്നാണ് സ്വർണം പിടിച്ചെടുത്തത് രുദ കോഴിക്കോട് ജില്ലയിലെ സഹകരണ ബാങ്ക് ഉൾപ്പെടെ ബാങ്ക് ജീവനക്കാർക്കായി ഇന്ന് കോവിഡ് വാക്സിനേഷൻ ക്യാമ്പ് നടക്കും ലീഡ് ബാങ്കിന്റെയും ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സി

ഐ ഹാളിൽ രാവിലെ ഒൻപത് മുതൽ വൈകീട്ട് അഞ്ച് വരെയാണ് ക്യാമ്പ് രുഭ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി

തലശ്ശേരി മലബാർ കാൻസർ സെന്ററിൽ തുടർ ചികിത്സയ്ക്ക് വരുന്ന രോഗികൾക്കും സന്ദർശകർക്കും കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു